സൂപ്രധാന നേട്ടം

മുന്നിൽ

തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം

സംതൃപ്തി നൽകുന്നതും അർത്ഥപൂർണ്ണവുമായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ രാഷ്ട്രപതി വിദ്യാർത്ഥി സമൂഹത്തെ ആഹ്വാനം ചെയ്തു ഒഡീഷ സന്ദർശനത്തിന്റെ രണ്ട്ടാം ദിവസമായ ഇന്ന് റൂർക്കേല എൻഐടിയുടെ പ്രിന്നെട്ടാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹം

മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ഇന്നലെ വൈകുന്നേരമാണ് ഒഡീഷയിലെത്തിയത്

കോവിഡ് മഹാമാരിക്കിടയിലും പ്രവർത്തനങ്ങളും ആസൂത്രണവും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ സമർത്ഥമായി ഏകോപിപ്പിച്ചതിലൂടേയാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് കേന്ദ്രസർക്കാർ വ്യക്തമാക്കി

എ പൊതുജനങ്ങൾക്ക് ന്യായ പ്പില്യ്ക്ക് മരുന്നുകൾ ലഭ്യമാകും കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്

എ പുതുതായി വിലനിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിൽ പേറ്റന്റ് കാലാവധി കഴിഞ്ഞതും പേറ്റന്റ് ഇല്ലാത്തതുമായ മരുന്നുകളും ഉൾപ്പെടുന്നു

ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവെയ്പ് നൽകുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ മുന്നിലാണ്

മൂന്ന് ലക്ഷത്തോളം പേർ ഇപ്പോൾ ചികിത്സയിലാണ്

ബ്രസീൽ ഇന്ത്യ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് രോഗബാധയിൽ അമേരിക്കക്ക് തൊട്ടുപിന്നിൽ

കോൺഗ്രസ് നേതാവ് പ്രീയ്കാ ഗാന്ധിയും ഇന്ന് അസമിൽ മൂന്ന് റാലികളെ അഭിസംബോർന്ന് ചെയ്യും

സ്ഥാനാർഥികൾക്കുവേണ്ടി വോട്ടഭ്യർത്ഥിച്ച് കേന്ദ്ര നേതാക്കളും താരപ്രചാരകരും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് കളത്തിലിറങ്ങുന്നത് കേന്ദ്ര പദ്ധതികളും കേന്ദ്രം നൽകുന്ന പണവും കേരളത്തിന്റെ പുരോഗതിക്കായി സംസ്ഥാന സർക്കാർ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് ബി ജെ

ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയാണ് ഇടുക്കി ജില്ലയുടെ സമഗ്രമായ പുരോഗതി മുന്നിൽക്കണ്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ ആശംസകൾ അറിയിച്ചു

കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നഗരവനവത്ക്കരണ പദ്ധതി നമ്മുടെ നഗരങ്ങളിൽ പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്രവനദിന സന്ദേശത്തിൽ കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു വനവത്ക്കരണം സംബന്ധിച്ച് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന അന്തരം കുറക്കാൻ പദ്ധതിയിലൂടെ കഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചു

ഗ്രാമവനങ്ങളെ ശ്രദ്ധാപൂർവ്വം സംരക്ഷിക്കുന്ന ഭാരതീയ പാരമ്പര്യത്തേയും മന്ത്രി അനുസ്മരിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് എണ്ണത്തിൽ വിജയിച്ച ഇന്ത്യ പരമ്പര കരസ്ഥമാക്കുകയായിരുന്നു

യുടെ നേതൃത്വത്തിൽ ലഡാക്കിൽ നിന്നുള്ള ഉന്നതതല സംഘം ഇന്നലെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി കിഴക്കൻ ലഡാക്ക് നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെപ്പറ്റി സംഘം മന്ത്രിയുമായി ചർച്ച നടത്തി നാടോടികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അതിർത്തി ഗ്രാമങ്ങളുടെ വികസനം സൈനൃത്തെ സഹായിക്കുന്ന ചുമട്ടുതൊഴിലാളികളുടെ വേതന വർദ്ധനവ് വിനോദ സഞ്ചാര വികസനം എന്നിവ ചർച്ചയില് ഉയർന്നുവന്നു

വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ധാരാളം ഹരിദ്വാറിലേക്ക് എത്തുന്നത് കോവിഡ് വ്യാപനം തീർത്ഥാടകർ വർദ്ധിപ്പിക്കാൻ ഇടയുള്ള സാഹചര്യത്തിൽ പരിശോധനകൾ വർദ്ധിപ്പിക്കാനും ആരോഗ്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു